വടക്കുകിഴക്കിന്റെ സംസ്ക്കാരം സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും കേന്ദ്രമന്ത്രി

ഉപകരണങ്ങളൂപ്പ് ്മർുന്നുകളും എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ത്രീരുമാനം

കോയമ്പത്തൂരിനടുത്ത് കെ

ടി

കക്കാണിന് സ്വർണ്ണം ക്രിക്കറ്റ് ടെസ്റ്റ് പരമ്പരയിൽ ഇന്ത്യ ന്യൂസ്ലാന്റ് ആദ്യ മത്സരം നാളെ വെല്ലിംഗ്ടണ്ണിൽ നടക്കും

കൂടുതൽ വിവരങ്ങളുമായി കൃഷ്ണ

വടക്കു കിഴക്കിന്റെ സമ്പന്നമായ സംസ്ക്കാരമില്ലാതെ ഇന്ത്യ പൂർണമാകില്ല പ്രദേശത്തെ മുഴുവൻ പ്രശ്ന രഹിതമാക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗ്രഹിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു

മോദി അധികാരത്തിലെത്തിയ ശേഷം വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തി

രാജ്യം അഞ്ചു ലക്ഷം കോടി ഡോളർ സമ്പദ്വ്യവസ്ഥയെന്ന കൈവരിക്കുന്നതിന് നേട്ടം അരുണാചൽപ്രദേശിന് പ്രധാന പങ്കുവഹിക്കാൻ ആകുമെന്നും കേന്ദ്രആഭ്യന്തരമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ നിരവധി വികസനപ്രവർത്തനങ്ങൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു

നൊവേൽ കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കുന്ന ചൈനയെ സഹായിക്കുന്നതിന്റെ ഭാഗമാണിതെന്ന് കേന്ദ്ര വിദേശകാരൃമന്ത്രാലയ വക്താവ് രവീഷ്കുമാർ അറിയിച്ചു സഹായങ്ങൾ എത്തിക്കുന്ന വിമാനത്തിൽ ചൈനയിൽ കഴിയുന്ന ഇന്ത്യാക്കാരെ തിരികെ നാട്ടിലെത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരികെ വരാൻ താൽപ്പര്യമുള്ളവർ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടാൻ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ജപ്പാൻ ആഡംബര കപ്പലിലെ യാത്രക്കാരായ എട്ട് ഇന്തൃക്കാർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ശ്രീ

ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറിമാർ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു നേരത്തെ വൃവസായ പ്രതിനിധികൾ സംഘടനകൾ എന്നിവരുമായും ധനമന്ത്രി ചർച്ച നടത്തിയിരുന്നു സെക്രട്ടറിമാരുമായുള്ള ചർച്ചയ്ക്കും വിശകലനത്തിനും പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു

ഇതിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂഡൽഹിയിൽ മാധൃമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

് ൻ ാ ് വനിത സൈനികർക്ക് സൈനിക പോലീസ് സെന്ററിൽ ് പരിശീലനം നൽകി വരുന്നതായി ശ്രീ

ജമ്മുകശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ കുറഞ്ഞതായും തീവ്രവാദ സംഘടനകൾക്കെതിരെ സേന ശക്തമായി പോരാടുന്നതായും അദ്ദേഹം പറഞ്ഞു അതിർത്തി കടന്നുള്ള ഭീകര പ്രവർത്തനം കുറഞ്ഞു വരുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

തലമുറകളിലൂടെ നമ്മുടെ സംസ്കാരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഭാഷയിലൂടെയാണ് മാതൃഭാഷയും ഗോത്ര ഭാഷകളും സംരക്ഷിക്കപ്പെടണമെന്നും ശ്രീ നായിഡു അഭിപ്രായപ്പെട്ടു

ടി

പുലർച്ചെ മൂന്ന് മണിയോടെയായിരുന്നു അപകടം ഏഴ് പേർ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു

അഗ്നിശമന സേനയും നാട്ടുകാരും സ്ഥലത്തെത്തിയാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്

ട്രംപിന്റെ സന്ദർശനത്തിന് ീതുടക്കം കുറിച്ചുള്ള ഇന്ത്യ റോഡ്ഷോയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ട്രംപും ഒരുമിച്ച് പങ്കെടുക്കും

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഇന്ന് ഉച്ച തിരിഞ്ഞ് വരാണാസിയിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ശിവരാത്രി ദിനമായ നാളെ പുലർച്ചെ ഇൻഡോറിൽ എത്തിച്ചേരും ഉന്നത നിലവാരമുളള സേവനത്തിനു പുറമേ ഓംകാരേശ്വർ ടൂർ പാക്കേജും മഹാകാൽ എക്സ്പ്രസ് വാഗ്ദാനം ചെയ്യുന്നതായി ഐ ആർ സി റ്റി സി ചീഫ് റീജണൽ മാനേജർ അശ്വിനി ശ്രീവാസ്തവ ആകാശവാണിയോട് പറഞ്ഞു കഴിഞ്ഞ ഞായറാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയാണ് മഹാകാൽ എക്സ്പ്രസ് ഫ്ളാഗ് ഓഫ് ചെയ്തത്

മഹാകാൽ എക്സ്പ്രസിന്റെ എല്ലാ കോച്ചുകളും മൂന്നാം ക്ലാസ്സ് എ സി സംവിധാനത്തിലുളളതാണ് ആഴ്ചയിൽ ദൃതവണ ട്രെയിൻ സർവ്വീസ് നടത്തും

ന്യൂഡൽഹിയിൽ നടന്ന മത്സരത്തിൽ ജൂനിയർ ലോക താരം നരൂഹ മത്സുയുക്കിയെയാണ് ദിവൃ പരാജയപ്പെടുത്തിയത് കിർഗിസ്ഥാനിലെ ബിഷ്കേക്കിൽ നടന്ന ഏഷ്യ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ നവജോത് കൌറാണ് ആദ്യമായി സ്വർണ്ണം കരസ്ഥമാക്കിയത്

ശിക്ഷ്ാ പുനഃപരിശോധനാ ബോർഡിന്റെ രേഖകളും സർക്കാരിന്റെ മറുപടിയോടൊപ്പം സമർപ്പിക്കാൻ ജസ്റ്റിസ് ബ്രിജേഷ് സേതി നിർദ്ദേശിച്ചു